പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതാക്കളെ അഭിസംബോധന ചെയ്യും സംസ്ഥാന പ്രസിഡന്റുമാരും സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്നവരും മറ്റ് പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും പശ്ചിമബംഗാൾഅസം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും കാർഷിക നിയമങ്ങളിലെ കർഷക പ്രക്ഷോഭത്തിന്റെയും സാഹചര്യത്തിൽ യോഗത്തിന് പ്രത്യേക പ്രാധാന്യം കല്പിക്കുന്നുണ്ട് ടെട കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറിന്റെ മൂന്നു ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം ഇന്ന് പൂർത്തിയാവും രാവിലെ പത്തരയോടെ അഗത്തി വിമാനത്താവളത്തിൽനിന്ന് അദ്ദേഹം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും സന്ദർശനത്തിന്റെ ആദ്യദിവസം കവരത്തിയിൽ ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ അടൽ പര്യാവരൻ ഭവൻ ജാവ്ദേക്കർ നാടിന് സമർപ്പിച്ചു ഇന്നലെ കവരത്തിയിലെ ഔഷധ സസ്യ തോട്ടവും സുഹൈരി ബങ്കാരം ചിന്നകര ദ്വീപുകളും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു സംരക്ഷിത കടൽ ജീവജാലങ്ങളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് സ്ഥാപിച്ച മറൈൻ ആന്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആന്റി പോച്ചിംഗ് ക്യാമ്പുകളുടെ പ്രവർത്തനവും പ്രകാശ് ജാവ്ദേക്കർ വിലയിരുത്തി ടെട റെയിൽവെയുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അറിയിച്ചു

റെയിൽവെയ്ക്ക് ബജറ്റിൽ അനുവദിച്ച അധികവിഹിതം അടിസ്ഥാന വികസനത്തിന് സുവർണ്ണാവസരമാണെന്നും പീയുഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു റെയിൽവെ സോണുകളിലെ പദ്ധതികൾ ഡൽഹിയിൽ അവലോകനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി ടെട മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ആഴക്കടൽ മീൻപിടുത്തത്തിന് സ്വദേശ വിദേശ കോർപറേറ്റുകളെയോ കമ്പനികളെയോ കേരള തീരത്ത് അനുവദിക്കില്ല ഈ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഒരു നിലപാടും എടുക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പിടിക്കുന്ന മത്സ്യത്തിന്റെ വില നിശ്ചയിക്കാനും സ്വന്തമായി വില്പന നടത്താനും മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ടെട സംസ്ഥാനത്തെ മൂന്ന് മത്സ്യബന്ധന തുറമുഖങ്ങൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും

എറണാകുളത്തെ ചെല്ലാനം മലപ്പുറത്തെ താനൂർ കോഴിക്കോട്ടെ വെള്ളയിൽ തുറമുഖങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്

ടെട്ട മൂന്ന് വർഷത്തിനകം വരവിലെയും ചെലവിലെയും അന്തരം കുറച്ച് കെ എസ് ആർ ടി സിയെ സ്വയം പര്യാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

എയിൽ മൂന്നെണ്ണം അടുത്ത മാസം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

മറ്റു ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം

ടെട കോവിഡിന്റെ രണ്ടാം ഘട്ടത്തിലും കേരളം തോറ്റിട്ടില്ലെന്ന് മന്ത്രി കെ

കോളേജിൽ മൂന്ന് പി ജി സീറ്റുകൾ അനുവദിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്ര ഇന്ന് കാസർക്കോട്ട് നിന്ന് ആരംഭിക്കും വൈകിട്ട് നാലിന് താളിപ്പടപ്പ് മൈതാനത്ത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും അഴിമതി വിരുദ്ധ പ്രീണന വിരുദ്ധ സമഗ്ര വികസന കേരളം എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിക്കുന്ന യാത്ര മാർച്ച് ഏഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും

നാളെ കണ്ണൂർ ജില്ലാ യാത്രാ സമാപന പരിപാടിയിൽ കേന്ദ്രമന്ത്രി വി

സിംഗ് പങ്കെടുക്കും

വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ സ്മൃതി ഇറാനി അനുരാഗ് ഠാക്കൂർ പ്രഹ്ളാദ് ജോഷി തുടങ്ങിയവർ പങ്കെടുക്കും തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ പങ്കെടുക്കും ടെട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് സമാപിക്കും പാറശ്ശാലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം അവസാനിക്കുന്നത് ഐശ്വര്യ കേരള യാത്രയുടെ ഔദ്യോഗിക സമാപന സമ്മേളനം ചൊവ്വാഴ്ചയാണ് രാഹുൽ ഗാന്ധി എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലും ബഹുസ്വരതയുടെ പരിപോഷണം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രാലയങ്ങൾ നിരവധി വെർച്വൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട വെബിനാറിനെ അഭിസംബോധന ചെയ്യും രെട ഐ എസ് എൽ ഫുട്ബോളിൽ മുംബൈ എഫ് സിയെ ജാംഷഡ്പൂർ അട്ടിമറിച്ചു

വൈകിട്ട് അഞ്ചിന് ബെങ്കലുരു ഗോവയെയും രാത്രി ഏഴരയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിയെയും നേരിടും രെടി മൂന്നാർ എഞ്ചിനിയറിംഗ് കോളേജ് കാമ്പസിൽ മദ്രാസ് ഐ ഐ ടി ആരംഭിച്ച കാലാവസ്ഥാ വ്യതിയാന ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു മനുഷ്യ ഇടപെടലിലൂടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം രുട കോഴിക്കോട് പെരുവണ്ണാമുഴി ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പവർഹൌസ് നിർമ്മാണം മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു

ആർ ടി സി ഡിപ്പോയുടെ പുതിയ ഓഫീസ് മന്ദിരവും ഗാരേജും മന്ത്രി എ

ഒരു കോടി രൂപ ചെലവിലാണ് ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടെട കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി അതിന് പിന്തുണ നൽകി മുന്നോട്ടു കൊണ്ടുപോകുന്ന നിലപാടാണ് വിദ്യാഭ്യാസത്തിലും കുട്ടികളുടെ ജീവിതത്തിലും സ്വീകരിക്കേണ്ടതെന്ന് മന്ത്രി ടി

കോഴിക്കോട് ജില്ലയിലെ വിളയാട്ടൂർ ഗവൺമെന്റ് എൽപി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി രുടെ കൊല്ലം റെയിൽവെ സ്റ്റേഷനിലെ പ്രധാന പ്രവേശന കവാടത്തെയും രണ്ടാം കവാടത്തെയും മറ്റ് പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന ഫുട് ഓവർബ്രിഡ്ജ് വൈകിട്ട് റെയിൽവെ മന്ത്രി പീയുഷ് ഗോയൽ ഓൺലൈനിലൂടെ യാത്രക്കാർക്കായി തുറന്നുകൊടുക്കും

പ്രേമചന്ദ്രൻ എം

പറഞ്ഞു ടെട കണ്ണൂർ പയ്യന്നൂരിൽ നടക്കുന്ന കേരള ഫോക് ലോർ അക്കാദമിയുടെ അന്താരാഷ്ട്ര ഫോക് ലോർ ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം വൈകീട്ട് ഷാജി എൻ